സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കുന്നമംഗലത്ത് തുടങ്ങും ലലലലലലലലലലലല കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി രണ്ട് ദിവസം കൂടി തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു

ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിയമനം ലഭിച്ച വർക്ക് പരിശീലനമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കി ല്ല നിയമനം ലഭിച്ചവരിൽ കൂടുതലും സ്ത്രീകളാണ് അവരുടെ ആവശ്യം വീടിന് സമീപത്ത് ജോലി വേണ മെന്നാണ്

കൂടുതൽ എംപാ നൽ ജീവനക്കാരെ പിരിച്ചുവിട്ട സ്ഥലത്തേക്കാണ് ഇവരെ നിയമിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി വൃക്തമാക്കി

അവ രുടെ പരി ശീ ലനം ഇന്നുതന്നെ ആരംഭിക്കും

നിയമം അനുസരിച്ച് മാത്രമേ നിയമനം നടത്താവൂ എന്ന് വൃക്തമാക്കിയ ഹൈക്കോടതി ഇപ്പോ ഴത്തെ ഒഴിവിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താമെന്നും അറിയിച്ചു പി എസ് സി വഴി യല്ലാത്ത നിയമനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ പി പറ ഞ്ഞു കണ്ടക്ടർമാരെ കേസിൽ കക്ഷി ചേരാനും ഹൈക്കോ ടതി അനുവദിച്ചു

ജഡ്ജിമാരായ വി ചിദംബരേഷ് നാരായണ പിഷാ രടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് പിൻമാറിയത് ഇത് രണ്ടാമത്തെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിൻമാറുന്നത്

പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രനാണ് നിരാഹാരമിരിക്കുന്നത് ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കുക അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടു ത്തുക തുടങ്ങിയ ആവശൃങ്ങളുന്നയിച്ചാണ് സമരം

ജേക്കബ് തോമസിനെ വീണ്ടും സസ്പെന്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണകമ്മീഷൻ ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് തീരുമാനം

സേവന വേതന വൃവസ്ഥകളും പെൻഷനും കാലാനുസൃതമായി പരിഷ്ക്കരിക്കണമെന്ന് ആവശൃപ്പെ ട്ടാണ് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസ് അസോസിയേഷൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്

സ്ഥകാര്യ ബാങ്കുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല

രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ടര വരെയും ലോക്സഭ ഉച്ചവരെയും പിരിയുന്നതായി സഭാധ്യക്ഷർ അറിയിച്ചു റഫേൽ ഇട പാടും കാവേരി നദിയിൽ തമിഴ്നാട് അണക്കെട്ട് നിർമ്മിക്കുന്നതും ഉന്നയിച്ച് കോൺഗ്രസും അണ്ണാ ഡി എം കെ ഡി എം കെ തെലു ഗു ദേശം എം പിമാരുമാണ് സഭാനടപടികൾ തടസ്സപ്പെടുത്തിയത്

ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രനാണ് പ്രമേയത്തിന് നോട്ടീസ് നല്കിയത്

നൂറോളം പേർക്ക് പൊള്ളലേറ്റു ഇവ രിൽ എട്ട് പേരുടെ നില ഗുരുതരമാണ്

കൊലപാതകവും ഗൂഢാലോ ചനയും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ജഡ്ജി ജെ എസ് ശർമ്മ വിധിന്യായത്തിൽ പറഞ്ഞു

ഗുജറാത്ത് രാജ സ്ഥാൻ പൊലീസിലെ ഉന്നതരടക്കം പ്രതികളായവരെ യാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടത്

ബി എസ് എൻ എൽ ഓഫീസിനു സമീപം തയ്യാറാക്കിയ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ വൈകീട്ട് പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്യും

വൈകീട്ട് ഏഴിന് ആദ്യമത്സരത്തിൽ തിരുവനന്തപുരത്തി ന്റെയും വയനാടിന്റെയും വനിതാടീമുകൾ മാറ്റുരയ്ക്കും

കട്ട ക്കിൽ വൈകുന്നേരം അഞ്ചിനാണ് മത്സരം പത്ത് പോയിന്റു മായി എട്ടാം സ്ഥാ നത്ത് നിൽക്കുന്ന ഗോകുലത്തിന് ഇന്നത്തെ ജയം അനിവാര്യമാണ് നാല് പോയിന്റുമായി ആരോസ് പട്ടികയിൽ പത്താമതാണ്

ഫുട് ബോൾ ബാസ് ക്കറ്റ് ബോൾ ഖൊ ഖൊ തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം

ബി ഇ എം ഗേൾസ് സ്കൂളിൽ രാവിലെ കഥാകൃത്ത് ടി പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാ നത്തെ ഇരു നൂറ് വർഷത്തെ വിദ്യാ ഭ്യാസചരിത്രം അടയാളപ്പെടുത്തുന്ന പ്രദർശനം വിദ്യാ ഭ്യാസവും കുട്ടികളും പ്രമേയമായി വരുന്ന സിനിമകൾ ഉൾക്കൊള്ളിച്ച ചലച്ചിത്രോത്സവം സെമിനാറുകൾ തുട ങ്ങിയവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്

ലലലലലലലലലലലല കോഴിക്കോട് കനോലി കനാലിനെ മാലിന്യമുക്ത മാക്കാൻ സോളാർ ബോട്ട് സംവിധാനം നടപ്പാക്കുമെന്ന് കോർപറേഷൻ അധികൃതർ അറിയിച്ചു

പ്രതിസന്ധി മറി കടക്കാൻ ഐ ഒ സി അധികൃതർ ശ്രമം തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട്

ഗവൺമെന്റ് നിർദ്ദേശിച്ച ഭേദഗതികൾ പ്രകാരം മാറ്റം വരുത്തിയ വിശദമായ റിപ്പോർട്ട് കിഫ്ബി നടപടികൾക്കായി സമർപ്പിക്കു മെന്ന് ആശു പത്രി സൂപ്രണ്ട് അറിയിച്ചു ക്രിസ്മസ് പുതുവർഷ സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ കോഴിക്കോട് ജില്ലയിൽ മദ്യമുൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് കർശന നിരീക്ഷണം എർപ്പെടുത്തിയതായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു

എക്സൈസ് പൊലീസ് വനംവകുപ്പുകൾ സംയു ക്തമായി വാഷ് ചാരായം എന്നിവ കണ്ടെത്താൻ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്

പള്ളിയിൽ കയറാൻ അനുവദിക്കു ന്നതുവരെ പിൻവാങ്ങില്ലെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കു കയാണ് വൈദികൻ പ്രതിഷേധവുമായി പള്ളിയിലും മുറ്റത്തും വിശ്വാസികൾ നിലയുറപ്പിച്ചിട്ടുണ്ട് സംഘർഷാ വസ്ഥ കണക്കിലെടുത്ത് പൊലീസ് സുരക്ഷ ശക്തമാ ക്കി

ഡാമിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ച ഫോട്ടോ ഗാലറി സെൽഫി പോയിന്റ് പിക്നിക് ഹാൾ എന്നിവയും ഉൽഘാടനവും ഇതോടൊപ്പം നടക്കും ചടങ്ങിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധൃക്ഷൻ വി

വരുന്ന സാമ്പത്തിക വർഷം ജില്ലയിൽ പ്രവൃത്തി കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയിരിക്കുന്നത്

സൂസൈപാകൃം തിരു വനന്ത പു രത്ത് ആവശ്യപ്പെട്ടു നൂറു കോടിയിലധികംരൂപയുടെ കണക്കുകൾ വൃക്തമാകുന്നി ല്ലെന്നും ഇക്കാര്യത്തിൽ വിശദീകരണം ലഭിക്കാൻ സഭയ്ക്ക് അവകാശമുണ്ടെന്നും സൂസൈപാകൃം മാധ്യ മങ്ങളോടു പറഞ്ഞു

മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സുരക്ഷാ അവബോധം നൽകുന്ന തിന് മെഡിക്കൽ ക്യാമ്പും ക്ലാസും പരിപാടിയുടെ ഭാഗ മായി സംഘടിപ്പിച്ചു മാസങ്ങൾക്ക് മുമ്പ് നാല് മത്സ്യബ ന്ധന തൊഴിലാളികളെ കടലിൽ കാണാതായിരുന്നു അവരെ ഇതുവരെ കണ്ടെത്താനാകാത്ത പശ്ചാത്തല ത്തിൽകൂടിയാണ് പ്രത്യേക ബോധവത്ക്കരണം നടന്നത്